പ്രധാനമന്ത്രി ഇന്ന് ലക്നൌവിൽ ഉദ്ഘാടനം ചെയ്യും

മദ്ധ്യേഷ്യയിൽ സമാധാനം പ്രുന്ന്സ്ഥാപിക്കുന്നതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡോണൾഡ് ട്രെംപിന്റെ നിർദ്ദേശം യൂറോപൃൻ യൂണിയൻ നിരാകരിച്ചു

കണ്ടെത്തിയില്ല

പ്രതിരോധ മേഖലയിലെ നൂതന സാങ്കേതിക വിദൃകൾ ഏകോപിപ്പിക്കുക വഴി പൊതു സ്വകാര്യ സ്റ്റാർട്ടപ്പ് സംരംഭകർക്ക് അവസരം സൃഷ്ടിക്കുകയാണ് മേളയുടെ മുഖ്യ ലക്ഷ്യം അഞ്ചു ദിവസത്തെ മേളയിൽ ബഹിരാകാശം പ്രതിരോധം സുരക്ഷാ താൽപ്പരൃങ്ങൾ തുടങ്ങിയ മേഖലകളെല്ലാം വിശകലനം ചെയ്യും

കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങളിൽ ജസ്റ്റിസ് സുരേഷ് കുമാർ ക്ട്യ്ത് അദ്ധ്യക്ഷനായ ബഞ്ച് വിഷയത്തിൽ പ്രത്യേക വാദം കേട്ട് വിധി ്പ്രസ്താവത്തിനായി മാറ്റിവയ്ക്കുകയായിരുന്നു

ശരിയായ ദിശയിലേക്കുള്ള ഈ മാറ്റം വിപണി ഏറെ നാളായി പ്രതീക്ഷിച്ചിരുന്നതാണെന്ന് അദ്ദേഹം മുംബൈയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

ഐ സി ഓഹരി വിറ്റഴിക്കൽ സംബന്ധിച്ച് ഗവൺമെന്റുമായി താൻ സംസാരിച്ചിട്ടില്ലെന്നും നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങൾ മാത്രമാണ് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളതെന്നും ശ്രീ

ശനിയാഴ്ച നടന്ന ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇതു സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയിരുന്നു ബാങ്കിങ് മേഖലയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ നടപടി സഹായകരമാകും

രാജ്യത്തെ എല്ലാ ബാങ്കുകൾക്കും ഇത് ബാധകമാണ്

റിസർവ്വ് ബാങ്ക് ഗവർണർ ശക്തികാന്താദാസിന്റെ അധ്യക്ഷതയിലാണ് യോഗ നടപടികൾക്ക് തുടക്കമായത്

പണപ്പെരുപ്പ വർദ്ധന സാമ്പത്തിക മാന്ദൃം ഉയർന്ന പണക്കമ്മി എന്നിവ വെളിപ്പെടുത്തുന്ന നടപ്പു വർഷത്തെ കേന്ദ്ര ബജറ്റിന്റെ പശ്ചാത്തലത്തിലാണ് ആർ ബി ഐ പണനയം പ്രഖ്യാപിക്കുന്നത്

ബോഡോ ഉടമ്പടിയുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനാണ് പ്രധാനമായും പ്രധാനമന്ത്രിയുടെ സന്ദർശനം സംസ്ഥാനത്ത് സമാധാനവും വികസനവും പുലരുന്നതിൽ ചരിത്രപരമായ നടപടിയാണ് ബോഡോ ഉടമ്പടിയെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു

ഏകദേശം നാല് ലക്ഷത്തിലേറെ പേർ സമ്മേളനത്തിന് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ

കൂടുതൽ വിവരങ്ങളുമായി സീന ആന്റണി

നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആരുടേയും ആരോഗൃനിലയിൽ ആശങ്കയ്ക്ക് വകയില്ലെന്നും മന്ത്രി വൃക്തമാക്കി ആരോഗ്യ വകുപ്പ് ഡയറക്ടറേറ്റിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി കൊറോണ വൈറസ് പ്രതിരോധത്തിന്റെ ഭാഗമായി ആരോഗൃവകുപ്പിന്റെ അഭ്യർത്ഥന മാനിച്ച് വീട്ടിൽ സ്ഥയം നിരീക്ഷിക്കുന്നവരെ ഓർത്ത് കേരളം അഭിമാനിക്കുന്നതായും മന്ത്രി പറഞ്ഞു നാടിന്റെ നന്മയെ ഓർത്ത് സ്വയം നിരീക്ഷണത്തിന് വിധേയമായ അവരെ എല്ലാ കാലത്തും ഓർക്കുമെന്നും മന്ത്രി പറഞ്ഞു അന്യദേശങ്ങളിൽ നിന്നും വന്നവരുടെ ആരോഗ്യം സംരക്ഷിക്കുക ഒരാളും മരിക്കരുത് സമൂഹത്തിൽ ഒരാൾക്ക് പോലും കൊറോണ പകരരുത് എന്നീ മൂന്ന് കാര്യങ്ങൾക്കാണ് ആരോഗ്യ വകുപ്പ് ഈ സമയത്ത് പ്രാധാന്യം നൽകുന്നത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പ്പുതുതായി പ്രവർത്തന മാരംഭിച്ച ഗവൺമെന്റ് മെഡിക്കൽ ക്കോളേജ് കൂടാതെ രണ്ട് എ

എസ് കൂടി ജ്മ്മു കാശ്മീരിൽ സ്ഥാപിക്കുമെന്നും ശ്രീ

ട്രംപ് കഴിഞ്ഞ ആഴ്ച മുന്നോട്ടു വച്ച നിർദ്ദേശങ്ങൾ ഭാവിയിൽ പാലസ്തീനിന്റെ രൂപീകരണത്തിന് വഴിവെക്കുമെങ്കിലും ആ രാജ്യത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിൽ നിർദ്ദേശം പരാജയമാണെന്നും അതുമല്ല വെസ്റ്റ് ബാങ്കിന്റെ നല്ലൊരു ഭാഗം അപ്പോഴും ഇസ്രായേലിന്റെ കൈകളിൽ തന്നെ നിലകൊള്ളുമെന്നും യൂറോപ്യൻ യൂണിയൻ നിരീക്ഷിച്ചു

സിറിയയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഇദലിബ് പ്രവിശ്യയിൽ ടർക്കിഷ് സിറിയൻ സൈന്യങ്ങൾ പരസ്പരം ബോംബാക്രമണങ്ങൾ നടത്തുന്നത് അത്യന്തം ആശങ്കാജനകമാണ്

നോവൽ കൊറോണ വൈദ്യ്യൂമായി ബന്ധപ്പെട്ട് ശ്വാസകോശ രോഗം പൊട്ടിപ്പുറപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി

കപ്പൽ യാത്രികരിൽ ഒരാൾക്ക് ഹോങ്കോങ്ങിൽ വച്ച് വൈറസ് ബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കപ്പലിലെ മുഴുവൻ യാത്രക്കാരെയും ജീവനക്കാരെയും പരിശോധനയ്ക്ക് വിധേയരാക്കുകയായിരുന്നു

ഇന്ത്യയ്ക്കുവേണ്ടി സുശാന്ത് മിശ്ര മൂന്ന് വിക്കറ്റും കാർത്തിക് ത്യാഗി രവി ബിഷ്ണോയ് എന്നിവർ രണ്ട് വീതം വിക്കറ്റുകളും വീഴ്ത്തി ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ബംഗ്ലാദേശ് ന്യൂസിലൻഡ് ക്സ്മിഫൈനൽ വിജയികളുമായി ഇന്ത്യ ഏറ്റുമുട്ടും ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇതോടെ ലോക റാങ്കിങ്ങിൽ നാലാം സ്ഥാനത്തെത്തി